എന്നും ആശാവഹമായി പ്രയത്നിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വികസനം എല്ലാവരിലേയ്ക്കും എത്തിക്കുക ലക്ഷ്യമെന്ന് പിണറായി വിജയൻ

ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് ഗുവാഹത്തിയിൽ തുടക്കം

ഗുജറാത്ത് ഹൈക്കോടതിയുടെ വജ്ജുബിലി ആഘോഷങ്ങൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉത്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ നീതിന്യായ വൃവസ്ഥ തങ്ങളുടെ ദൌത്യൂർ മാതൃകാപരമായാണ് നിർവ്വഹിച്ച് വരുന്നതെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

കേന്ദ്ര നിയമ മന്ത്രി രവിശങ്കർ പ്രസാദ് സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി തുടങ്ങിയവരും ചടങ്ങിൽ വിർചൽ ആയി പങ്കെടുത്തു

വിശദാശംങ്ങളുമായി അക്ഷയ് വോയ്സ് അസമിലെ ദേശീയ പാതകളും പ്രധാന ജില്ലാ റോഡ് ശൃംഖലയും മെച്ചപ്പെടുത്താൻ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള അസോം മാല പദ്ധതിയ്ക്ക് പ്രധാനമന്ത്രി നാളെ തുടക്കമിടും

പശ്ചിമ ബംഗാളിലെ ഹാൽദിയയിലെ പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കും ശ്രീ

ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഹാൽഡിയ റിഫൈനറിയുടെ രണ്ടാമത്തെ കാറ്റലിറ്റിക് ഐസോഡെവാക്സിംഗ് യൂണിറ്റിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരുകോടി അഞ്ച് ലക്ഷം കവിഞ്ഞു

സഹായ ധനം ഉപയോഗിച്ചും കരാർ ഡോസുകളായും വാക് സിനുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ശ്രീ ഹർഷ്വർദ്ധൻ ലോക്സഭയിൽ പറഞ്ഞു

പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്രസംഘത്തിന്റെ നിർദ്ദേശം സദുദ്ദേശത്തോടെ എടുക്കുന്നതായും പരിശോധനകൾ വർദ്ധിപ്പിച്ച് വരികയാണെന്നും മന്ത്രി കെ

സംസ്ഥാനത്ത് മരണ നിരക്ക് കുറവാണെങ്കിലും രോഗവ്യാപനതോത് ഉയർന്നു നിൽക്കുയാണ് നേരത്തെ രണ്ട് തവണ കേന്ദ്രസംഘം കോവിഡ് വിലയിരുത്തലുകൾക്കായി കേരളത്തിലെത്തിയിരുന്നു

കൃത്ദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രോഗവ്യാപനം റ്റ്റുണ്ടൂർ ഉയർന്നുവെന്നാണ് വിലയിരുത്തൽ

അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്

പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായാണ് പ്രവർത്തിച്ചത്

പുതുതലമുറയെ കൂടുതൽ കഴിവുറ്റവരാക്കി മാറ്റുന്നതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേന്ദ്ര വ്യവസായമന്ത്രി പ്രീയുഷ് ഗോയൽ യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീപ്പ് ് വൈസ് പ്രസിഡന്റ് വാൾഡിസ് ഡോംബ്റോസ്കിസ്ട് എന്നിവർ സംയുക്തമായി ആധ്യക്ഷം വഹിച്ച ആദ്യ ഇന്ത്യൂ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചയിലായിരുന്നു തീരുമാനം കോവിഡ് മഹാമാരിക്കാലത്ത് ് അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണത്തിന്റെ പ്രാധ്യാന്യത്തെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നു

അതിനിടെ മൃാൻമാറിലെ പട്ടാള ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ് ഈമാസം ഒന്നിനാണ് ഓങ് സാങ് സൂകിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിച്ച് രാജ്യത്ത് പട്ടാളം ഭരണം പിടിച്ചെടുത്തത്

അപർണ റോയിയും ടി

എ ടി കെ മോഹൻ ബഗാൻ ഒഡീഷയെ നേരിടും

ഇത് പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഒരു കേന്ദ്രീകൃത നിക്ഷേപക അനുമതി സംവിധാനം സജ്ജമാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ എന്നിവയുടെ അനുമതി ദാന പോർട്ടലുകളെ ഏകീകരിക്കുന്ന ദേശീയതല പോർട്ടൽ ആയിരിക്കും ഈ നിക്ഷേപക അനുമതി സെൽ

ടെലഫോൺ കണക്ഷൻ വഴിയുള്ള ഇന്റർനെറ്റ് സ്റ്റ്വർക്കുള്ള നിയന്ത്രണവും നീക്കിയെന്ന് ജമ്മുകൾമീർ സർക്കാർ വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു